കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തി ഭക്തർക്ക് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സമഗ്ര പക്ഷാഘാത ചികിത്സാ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആരംഭിക്കുമെന്ന് മന്ത്രി കെ

ചിത്തിര ആട്ടത്തിരുന്നാൾ വിശേഷ പൂജയ്ക്കായി നട തുറക്കാൻ മണിക്കൂ റുകൾ മാത്രം ബാക്കി നിൽക്കെ കനത്ത സുരക്ഷയിലാണ് ശബരിമലയും പരിസര പ്രദേശങ്ങളും

സന്നിധാനത്ത് സ്ത്രീകളെ ഉപയോഗിച്ച് ബി ജെ പിയും പോഷക സംഘടനകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന ഇന്റ ലിജന്റ് സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടി വന്നാൽ വനിതാപൊലീസിനെ നിയമിക്കുമെന്ന് പൊലീസ് അറിയിച്ചു

നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഇലവുങ്കൽ മുതൽ ശബരിമല സന്നിധാനം വരെ പൊലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് മാധ്യമപ്രവർത്തകർക്ക് പമ്പയിലേക്ക് പോകാൻ ഇന്നലെ രാത്രി അനുമതി നൽകി

തന്ത്രി കണ്ഠരര് രാജീവരരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നട തുറന്ന് ശ്രീ കോവിലിൽ വിളക്ക് തെളിയിക്കും നാളെ പതിവു പൂജകളും വിശേഷാൽ പൂജകളും ഉണ്ടാകും

ഭക്തർക്ക് ഗവൺമെന്റ് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി കടകം പള്ളി സുരേന്ദ്രൻ അറിയിച്ചു ഇതുവർെ യുവതികളാരും ദർശനത്തിനായി സംര ക്ഷണം തേടി പൊലീസിനെ സമീപിച്ചിട്ടില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ് സുഗമമായ ദർശനത്തിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയ തായി പത്തനംതിട്ട ജില്ലാ പൊലീസ് മേധാവി പി നാരായണൻ അറിയിച്ചു

ശ്രീധരൻപിള്ള ആരോപിച്ചു പാർട്ടി കോൺഗ്രസിൽ പാർട്ടി മെമ്പർമാരും അനുഭാവികളും മതപരമായ ആചാരാനുഷ്ഠാന്നങ്ങളിൽ നിന്നും മാറി നിൽക്കണ മെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തക രോട് പറഞ്ഞു നടക്കാതെ പോയ പാർട്ടി തീരുമാനം സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമല വിഷയത്തിൽ നടത്താൻ ശ്രമിക്കുകയാണെന്നും ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തി ശബരിമല കാര്യത്തിൽ സഹന സമരമാണ് ബി ജെ പി നടത്തുന്ന തെന്നും അദ്ദേഹം പറഞ്ഞു

യഥാർത്ഥ കോൺഗ്രസുകാർക്ക് ആർക്കും പാർട്ടി വിട്ട് ബി ജെ പിയി ലേക്ക് പോകാനാവില്ലെന്ന് കെ

പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതി കരിച്ചു കോൺഗ്രസ് അനുഭാവികളിൽ ചിലർക്ക് പോകാൻ കഴിഞ്ഞേക്കാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കോൺഗ്രസ് ഒരിക്കലും സംഘപരിവാറു മായി കൂട്ടുചേർന്നിട്ടില്ലെന്നും സി

എമ്മാണ് നേരത്തെ ഇത്തരക്കാരുമായി ചങ്ങാത്തമുണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു

ജി മാരാർ അടക്കമുള്ളവരു മായി സി പി ഐ എമ്മിനായിരുന്നു ബന്ധമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കണമെന്നാ വശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ നടന്ന ധർണ്ണ ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു അദ്ദേഹം

് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് നടത്തുന്ന ബഹു ജനറാലി ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും റാലിയെ തുടർന്ന് കണ്ണൂർ നഗരത്തിൽ ഇന്ന് വൈകിട്ട് ഗതാഗത നിയ ന്ത്രണം ഏർപ്പെടുത്തി

ക്കുന്ന സമഗ്ര പക്ഷാഘാത ചികിത്സാകേന്ദ്രങ്ങൾ സംസ്ഥാനത്തെ എല്ലാ മെഡി ക്കൽ കോളേജുകളിലും ആരംഭിക്കുമെന്ന് മന്ത്രി കെ

ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾക്ക് കേന്ദ്രം സ്ഥാപിക്കുന്നതിന് അഞ്ചുകോടി രൂപ വീതം അനുവദിച്ചതായി അവർ തിരുവനന്തപുരത്ത് പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പക്ഷാ ഘാത യൂണിറ്റ് നാളെ ഉദ്ഘാടനം ചെയ്യും ഇത് വിപുലീകരിച്ചാണ് സമഗ്ര പക്ഷാ ഘാത കേന്ദ്രമാക്കുക

പക്ഷാ ഘാത കാത്ത് ലാബ് ഉൾപ്പെടെ പക്ഷാഘാത ചികിത്സയ്ക്കാവശ്യമായ അതിനൂ തന സൌകര്യങ്ങളാണ് ഈ സെന്ററിൽ ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു

ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ അധ്യക്ഷക്കും ഉപാധ്യക്ഷനുമെതിരെ യു

എഫ് കൊണ്ടുവന്ന അവിശ്വാസപ്രമേയം ഇന്ന് ചർച്ച ക്കെടുക്കും

വെൽ ഫെയർ പാർട്ടി അംഗം അവിശ്വാസപ്രമേയ നോട്ടീസിൽ ഒപ്പിട്ടിരുന്നു നേരെത്തെ സ്ഥിരം സമിതി അധ്യക്ഷന്മാർക്കെതിരായ അവിശ്വാസത്തെ സി

എം പിന്തുണച്ചിരുന്നെങ്കിലും ഇന്നത്തെ തീരുമാനം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല

ത്തവരുടെ പട്ടിക പുറത്തുവിടണമെന്ന സുപ്രീം കോടതി ഉത്തരവ് പാലിക്കാത്ത തിന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിസർവ്വ് ബാങ്ക് ഗവർണർ ഡോക്ടർ ഊർജ്ജിത് പട്ടേലിന് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകി കോടതി വിധി

മുൻ ആർ ബി ഐ ഗവർണർ ഡോക്ടർ രഘുറാം രാജൻ കിട്ടാക്കടം സംബന്ധിച്ച് നൽകിയ കത്ത് പുറത്തുവിടണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിനോടും ധനമന്ത്രാലയത്തോടും റിസർവ്വ് ബാങ്കിനോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു ് ് ് ് ് ് ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കൊച്ചിയിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളുരു എഫ് സിയെ നേരിടും തുടർച്ചയായ നാല് സമനിലകളിൽ കുരുങ്ങി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് വിജയം കൊതിച്ചാണ് മത്സരത്തിനിറങ്ങുന്നത്

ആദ്യമത്സരത്തിൽ കൊൽക്കത്തയിൽ ഇന്ത്യ അഞ്ചു വിക്കറ്റിനാണ് വിൻഡീസിനെ തോല്പിച്ചത്

മൂന്ന് മത്സര പരമ്പരയിലെ അടുത്ത മത്സരം നാളെ ലക്നൌവിൽ നടക്കും ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിയ്ക്ക് ഈ സീസ ണിൽ ആദ്യ തോൽവി കോഴിക്കോട്ട് ചെന്നൈ സിറ്റി എഫ് സിയോട് രണ്ടിനെ തിരെ മൂന്നുഗോളുകൾക്കാണ് അവർ പർാജയപ്പെട്ടത് എവേ മത്സരത്തിൽ ഞായ റാഴ്ച ഷില്ലോംഗ് ലജോംഗുമായാണ് ഗോകുലത്തിന്റെ അടുത്ത മത്സരം ് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് മീറ്റ് റാഞ്ചിയിൽ ഇന്ന് സമാപിക്കും മീറ്റിൽ കിരീട സാധൃത മങ്ങിയ കേരളത്തിന് മൂന്നാംദിനം ഒരു സ്വർണ്ണവും രണ്ട് വെള്ളിയും നാല് വെങ്കലവും മാത്രമാണ് ലഭിച്ചത്

് തിരുവനന്തപുരത്ത് രഞ്ജിട്രോഫി ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ കേര ളം ഹൈദരാബാദിനോട് സമനിലയിൽ പിരിഞ്ഞു മൂന്നാം ദിവസത്തെ മത്സരം മഴ കാരണം തടസ്സപ്പെട്ടതിനാലാണ് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ നേടി യിട്ടും കേരളത്തിന് സമനില വഴങ്ങേണ്ടി വന്നത്

മെന്റിൽ വടക്കൻ മേഖല ജേതാക്കളായി പശ്ചിമ മേഖല രണ്ടാം സ്ഥാനം നേടി ഒ മേഖലകളായിട്ടായിരുന്നു മത്സരം

തലശ്ശേരിയിൽ സെവൻസ് ഫുട്ബോൾ അസോസിയേ ഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മ്യന്തി

ആറു ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും നാലു ലക്ഷം രൂപ വീട് വയ്ക്കാനുമാണ് നൽകുക യെന്ന് അദ്ദേഹം പറഞ്ഞു കാലങ്ങളായി അടിച്ചമർത്തലുകൾക്ക് വിധേയമായ സാമൂഹിക വിഭാ ഗങ്ങളിൽ നീതിപുലരണമെങ്കിൽ അവർക്കായി ഗവൺമെന്റ് വിഭാവനം ചെയ്ത വിവിധ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു കാസർക്കോട് കിനാലൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ ചായോത്ത് കോളനിയിലെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രവൃത്തി ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി

നപ്പുറം പിണറായി ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു സ്വകാര്യ വ്യക്തികളുടെ ഒരിഞ്ച് ഭൂമിപോലും പരിസ്ഥിതി ദുർബല മേഖലയിൽ ഉൾപ്പെടുത്താതെയാണ് യു ഡി എഫ് ഗവൺമെന്റ് റിപ്പോർട്ട് നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നയവിശദീകരണയോഗം ഇടുക്കി ബൈസൺവാലിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സവർണ്ണ ബോധത്തോടെ സാംസ്കാരിക അടയാളങ്ങൾ ഉയർന്നുവരു മ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രാദേശിക കൂട്ടായ്മകൾക്കേ കഴിയുകയുള്ളൂ വെന്ന് സ്പീക്കർ പി

് മലമ്പുഴ ഡാമിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ രണ്ടാം വിളയ്ക്ക് ഇടതുകനാൽ വഴി ജലസേചനം ഇന്നാരംഭിക്കും

സി പി ഐ എം നേതാവും കണ്ണൂർ ചെറുതാഴം പഞ്ചായത്ത് പ്രസി ഡന്റുമായിരുന്ന അദിയടത്തെ ഇ നാരായണൻ മാസ്റ്റർ നിര്യാതനായി

സംസ്കാരം ഇന്ന് രാവിലെ അദിയടത്ത് നടക്കും

നീലേശ്വരം കാവിൽഭവൻ യോഗ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിനാണ് രണ്ടാം സ്ഥാനം ദേശീയ ആയുർവ്വേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ കണ്ണൂരിൽ മന്ത്രി കെ

ശൈലജ നിർവഹിക്കും ദിനാചരണ ത്തിന്റെ ഭാഗമായി സെമിനാർ ബോധവത്കരണ ക്ലാസ് പ്രദർശനം എന്നിവ ഒരു ക്കുന്നുണ്ട്

അബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായി നാളെ ന്യൂനമർദ്ദം രൂപം കൊള്ളുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു